ജെ

മന്ത്രിസഭ രൂപീകരണത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ക്ഷണിച്ചു

സയൻസ് ഓൺ ്ട്ലെൻ പ്രവേശന പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചു വെന്നതിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ ആറ് പേരെ അറസ്റ്റ് ചെയ്തു

ഗോയലിനേയും ഭാര്യ അനിത ഗോയലിനേയും രാജ്യം വിടുന്നത് മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു

ജർമനിയിലെ മ്യൂണിച്ചിൽ തുടക്കമാകും

പി നേതാവ് നരേന്ദ്രമോദിയെ പുതിയ മന്ത്രിസഭ രൂപീകരണത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ക്ഷണിച്ചു

മോദിയെ പ്രധാനമന്ത്രിയായി അദ്ദേഹം ചുമതലപ്പെടുത്തിയത് കേന്ദ്ര മന്ത്രിസഭ അംഗങ്ങളെ നിയമിക്കാനും രാഷ്ട്രപതി നിർദ്ദേശിച്ചു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയ പ്രധാനമന്ത്രിയായി ചുമതലയ്ൽക്കുന്ന തീയതിയും സമയവും വ്യക്തമാക്കാൻ ശ്രീ മോദിയോട്ട് രാഷ്ട്രപതി നിർദ്ദേശിച്ചു രാഷ്ട്രപതി ഭവനിലായിരിക്കും സത്യപ്രിതിജ്ഞ ചടങ്ങുകൾ

ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രാവർത്തികമാക്കുമെന്നും ശ്രീ

വരുംദിവസങ്ങളിൽ ഗവൺമെന്റ് ദ്രുതഗതിയിൽ പ്രവർത്തിക്കുമെന്നും ഒരു നിമിഷം പോലും പാഴാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് മന്ത്രം രാജ്യത്തിന്റെ എല്ലാ മേഖലയിലേയും വികസനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ജെ പി നയിക്കുന്ന എൻ

എ യുടെ നേതാവായി നേരത്തെ ശ്രീ

കഠിന പ്രയത്നത്തേയും സത്യസന്ധതയേയും രാജ്യം മാനിക്കുന്നതായും അതാണ് രാജ്യത്തിന്റെ ശക്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശക്തിയും ഒത്തൊരുമയുമാണ് എൻ

എ യുടെ പ്രത്യേകതയെന്നും സഖ്യകക്ഷികളോട് തോൾ ചേർന്ന് പോകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു മതത്തിന്റേയോ ജാതിയുടെയോ പേരിൽ ആരെയും വ്യത്യസ്തരാക്കരുതെന്നും ആരെയും പിന്നിൽ ഉപേക്ഷിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ഉദ്ധിയ്ത് അധികാര മേൽക്കുന്നതിന് മുമ്പായി മാതാവിനെ സന്ദർശിച്ച് അന്ുഗ്രഹം വാങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെക്പി ്ദേശീയ അധ്യക്ഷൻ അമിത്ഷയ്ക്കും വമ്പിച്ച വരവേൽപ്പാണ്ട് അഹമ്മദാബാദിൽ പാർട്ടി ഇന്ന് ഒരുക്കിയിട്ടുള്ളത് ബി ജെ പി നേതാക്കൾ അനുയായികൾ വിവിധ മതനേതാക്കൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വഗ്ഹാനി അഹമ്മാബാദിൽ പറഞ്ഞു സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം അദ്ദേഹം ബി ജെ

ചൌക്കിൽ സംഘടിപ്പിക്കുന്ന പൊതുറാലിയെ അഭിസംബോധന ചെയ്യും നാളെ വാരാണസി സന്ദർശിക്കുന്ന അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുത്തിൽ ജനങ്ങളോട് നന്ദി നേരിട്ട് അറിയിക്കും നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം വോട്ട് നേടിയാണ് അദ്ദേഹം വാരണാസിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്

ആർ കോൺഗ്രസ് അധ്യക്ഷൻ വൈ

ജഗൻ മോഹൻ റെഡ്നിയെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഗവർണർ ഇ

എൽ നരസിംഹറാവു ക്ഷണിച്ചു ഇന്നലെ വൈകിട്ട് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു നിയമസഭാകക്ഷി നേതാവായി തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിയുടെ പ്രമേയം അദ്ദേഹം ഗവർണർക്ക് കൈമാറി

എം കെ യിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക സഭാംഗങ്ങളുടെ യോഗം ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് ചേർന്നു മുതിർന്ന നേതാവ് ടി

ബാലുവിനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു കനിമൊഴിയാണ് ഉപനേതാവ്

സ്റ്റാലിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം

പാർട്ടി നേതാവ് മമതാ ബാനർജിയുടെ കൊൽക്കത്തയിലെ വസതിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം കാകോലി ഘോഷ് ദസ്തിദാർ പാർട്ടി ഉപാധ്യക്ഷനും കല്യാൺ ബാനർജി പാർലമെന്ററി പാർട്ടി ചീഫ് വിപ്പും ആയിരിക്കും ഗവൺമെന്റിന്റെ ക്രിയാത്മക നടപടികളുമായി തന്റെ പാർട്ടി സഹകരിക്കുമെന്നും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം തുടരുമെന്നും ശ്രീമതി മമത അറിയിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജി വയ്ക്കാനുള്ള മമതുടെ തീരുമാനം പാർട്ടി അംഗീകരിച്ചില്ല

എല്ലാപ്പരും സമാധാനം പാലിക്കണമെന്നും രാഷ്ട്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസനത്തിനായി ജനങ്ങൾ ഒന്നിച്ച് നിന്ന് കൂട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ബി ഐ അറസ്റ്റു ചെയ്തു

വോയിസ് ബിർളാ ഇൻസറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആന്റ് സയൻസ് ഓൺ ലൈൻ പ്രവേശന പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചു വെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അറസ്റ്റ്

ഡി ഭാസ്ക്കർ ചൌധരി അഹമ്മദാബാദിലെ ദിശ എഡ്യൂക്കേഷന്റെ കേതൻ ബാരോട്ട് സൈബർ വിദഗ്ധൻ ഷേത് മുഹമ്മദ് ഉസാമാ വിരാഗ് ഹരേന്ദ്ര കുമാർ ഷാ അഹമ്മാദാ ബാദിലെ പരീക്ഷ കേന്ദ്രത്തിന്റെ ഉടമ നിഷികാന്ത് സിൻഹ അതിന്റെ മാനേജർ ദർപ്പൺ ഷിരിഷ് പഥക് തുടങ്ങിയവരാണ് അറസ്റ്റിലായത്

ബി ഐ വക്താക്കൾ പ്റഞ്ഞു

മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് പോകാൻ തയ്യാറെടുക്കവേ വിമാനം പുറപ്പെടുന്നതിന് മിനിറ്റുകൾ മാത്രം ശേഷിക്കെയാണ് ഇവരെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞത് എമിറേറ്റ്സ് എയർവേയ്സിന്റെ ഇ

വടക്കൻ ത്രിഫ്ടുരയിലെ ഉനയകോട്ട ധലായ് എന്നീ ജില്ലകളെ മഴ ഏറെ ബാധിച്ച്ത്യി് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി മേധാവി സരത്ദാസ് പീറഞ്ഞു

ദേശീയ ദുരന്ത നിവാരണ് സേനയും ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതായി സരത്ദാസ് വൃക്തമാക്കി ഇന്നും കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

കഴിഞ്ഞ രണ്ട് ദിവസമായി കനത്ത മഴയെ തുടർന്ന് ബത്തേരി ഛഷ്മയിൽ ഇന്നലെ രാവിലെയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത് ദേശീയ പാതയിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളെ പോകാൻ അനുവദിച്ചതായും പോലീസ് അധികൃതർ പറഞ്ഞു

ഇതിൽ രണ്ട് പുരുഷൻമാരുടെ നില ഗുരുതരമാണ് ട്ടിൽജ്ഞാതർ വെടിവച്ചതിന്റെ കാരണങ്ങൾ വ്യക്തമല്ല

ഇന്ത്യൻ താരങ്ങളായ അപൂർവി ചന്ദേല അൻജം മോഡ്ഗിൽ എളവേനിൽ വാലറിവൻ എന്നിവർ മത്സരരംഗത്തുണ്ട് വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾസ് മത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകുന്നത്

കൊല്ലത്ത് നടത്തിയ മെഗാ അദാലത്തിന് പിന്നാലെയാണ് അംഗങ്ങൾ ഇക്കാര്യം അറിയിച്ചത്